ശക്തമായ ഇന്ത്യയാണ് ഗവൺമെന്റിന്റെ ലക്ഷ്യമെന്നും രാഷ്ട്രപതി

ഗുജറാത്തിൽ കസ്റ്റഡി മരണക്കേസുമായി ബന്ധപ്പെട്ട് മുൻ ഐ

എസ്

ഇറക്കുമതി ചെയ്തതെന്ന് ഗവൺമെന്റ് അഴിമതി ആരോപിച്ച് പ്രതിപക്ഷം നിയമസഭയിൽ നിന്നിറങ്ങിപ്പോയി

കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

ഇപ്പോഴത്തെ സഭയിൽ പകുതിയിലധികം അംഗങ്ങളും ആദ്യമായി തെരഞ്ഞെടുക്കപ്പെട്ടവരാണെന്ന് രാഷ്ട്രപതി ചൂ ിക്കാട്ടി

ഗുരുദേവ് രബീന്ദ്രനാഥ് ടാഗോറിന്റെ ആശയങ്ങളും ശ്രീനാരായണ ഗുരുവിന്റെ ദർശനങ്ങളും നവ ഇന്ത്യയ്ക്ക് മാർഗദർശനം നൽകുമെന്നും ശ്രീ രാംനാഥ് കോവിന്ദ് പറഞ്ഞു

ന്യൂസ് ഡെസ്ക് ആകാശവാണി

യോഗാഭ്യാസം ചെയ്യുന്നതിലൂടെ ലഭിക്കുന്ന ഗുണഗണങ്ങൾ സംബന്ധിച്ച് ബോധവത്ക്കരണമാണ് ലക്ഷ്യം അന്താരാഷ്ട്ര യോഗ ദിനത്തോടനുബന്ധിച്ചുള്ള മുഖ്യ ചടങ്ങ് നാളെ ജാർഖണ്ഡ് തലസ്ഥാനമായ റാഞ്ചിയിൽ നടക്കും

കൂടുതൽ വിവരങ്ങളുമായി ദീപു എസ്

ചെങ്കോട്ട നെഹ്റുപാർക്ക് ലോധി ഗാർഡൻ താൽകതോറ ഗാർഡൻ യമൂന സ്പോർട്സ് കോംപ്ലക്സ് ദാരക എന്നിവിടങ്ങളിലും യോഗാദിനാഘോഷമുണ്ട്

ഗോവയിൽ മഡ്ഗാവിലെ രവീന്ദ്ര ഭവനിൽ ഇന്ന് പരിശീലന ക്ലാസൂകൾ നടന്നു

യൂവാക്കളും കായികതാരങ്ങളും മാധ്യമപ്രവർത്തകരൂം യോഗാഭ്യാസം ചെയ്യണമെന്ന് കായിക യുവജനക്ഷേമ വകൂപ്പ് മന്ത്രി കിരൺ റിജ്ജൂ അഭ്യർത്ഥിച്ചു യോഗാദിനാഘോഷത്തിന് എല്ല് ഒരുക്കങ്ങളും പൂർത്തിയായെന്നും അദ്ദേഹം പറഞ്ഞു

കേരളത്തിൽ ് നാളെ രാവിലെ ഏഴ് മണിക്കും തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ അന്താരാഷ്ട്ര യോഗദിനം ഉദ്ഘാടനം ചെയ്യും ഇതിന് മുന്നോടിയായി ഇന്ന് നഗരത്തിൽ വിളംബര ജാഥ നടന്നു

എ

ഗുജറാത്തിലെ ലൈഫ് മിഷൻ സ്ഥാപകൻ സ്വാമി രാജർഷി മുനി ഇറ്റലിയിലെ അന്റോണിയേറ്റ റോസി എന്നിവർക്ക് വൃക്തിഗത പുരസ്ക്കാരവും ബിഹാറിലെ സ്കൂൾ ഓഫ് യോഗ ജപ്പാനിലെ ജപ്പാൻ യോഗ നികേതൻ എന്നീ കേന്ദ്രങ്ങൾക്കുമാണ് പുരസ്ക്കാരം ലഭിക്കുന്നതെന്ന് ആയുഷ് മന്ത്രാലയം പുറത്തിറക്കിയ ഔദ്യോഗിക പത്രക്കുറിപ്പിൽ അറിയിച്ചു

പത്ത് ശിശുരോഗ വിദഗ്ധരും അഞ്ച് പാരാമെഡിക്കൽ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്ന കേന്ദ്ര സംഘമാണ് ഇന്നലെ എത്തിച്ചേർന്നത്

വെങ്കയ്യ നായിഡു എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടേയും പിന്തുണ തേടി ജനങ്ങളുടെ അഭിലാഷങ്ങൾ പൂർത്തീകരിക്കുന്നതിനാവണം സഭയിൽ രാഷ്ട്രീയപാർട്ടികൾ മുൻഗണന നൽകേ തെന്ന് ഇന്ന് ഉപരാഷ്ട്രപതിയുടെ വസതിയിൽ നൽകിയ ഉച്ച വിരുന്നിൽ ശ്രീ

രാജ്യത്തെ എല്ലാ നിയമനിർമാണ സഭകളുടേയും മാതൃകയാണ് രാജ്യസഭയെന്നും സഭയുടെ അന്തസ്സും പാരമ്പര്യവും ഉയർത്തി കാട്ടുന്നതിന് അംഗങ്ങൾക്ക് ഉത്തരവാദിത്തമുടെ ന്നും അദ്ദേഹം പറഞ്ഞു

പ്രവീൺ സല എന്ന പോലീസ് കോൺസ്റ്റബിളിനും ജീവപര്യന്തം തടവ് ഈ കേസിൽ വിധിച്ചിട്ടു ്

അഞ്ചു തവണ മിതമായ വിലയ്ക്ക് നിലവാരമുള്ള തോട്ട ിയാണ് ഇറക്കുമതി ചെയ്തത്

ടോസ് നേടിയ ഓസ്ട്രേലിയ ബാറ്റിങ് തിരഞ്ഞെടുക്കുകയായിരുന്നു

കൊള്ളലാഭമു ാക്കുന്നത് നിയന്ത്രിക്കാനുള്ള സമിതിയുടെ കാലാവധി ഒരു വർഷം കൂടി നീട്ടി നൽകുന്നതും പരിഗണിക്കും കേന്ദ്രീകൃത പണം തിരിച്ച് നൽകാൻ ഇ ഇൻവോയിസ് സംവിധാനം ഏർപ്പെടുത്തുക എന്നതും ചർച്ച ചെയ്യും ദേശീയ ഹൈവേ അതോറിറ്റിയുടെ ഇലക്ട്രോണിക് ടോൾ ശേഖരണവുമായി ജി എസ് ടി ഇ വേ ബിൽ സംവിധാനം ഏകോപിപ്പിക്കുന്നതും ചർച്ചയാകും ചരക്ക് സേവന നികുതി നൽകുമ്പോൾ ഉ ാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുളള കരട് ഭേദഗതി ബില്ലിന് അംഗീകാരം നൽകുന്നതും പരിഗണിക്കും

ഇന്ന് ഉദ്ഘാടനം നടക്കാനിരുന്ന പുതുതായി നിർമ്മിച്ച പോലീസ് സ്റ്റേഷൻ മന്ദിരത്തിനു സമീപം നടന്ന സംഘട്ടനത്തിൽ ര ് സംഘങ്ങളും ബോംബും പടക്കങ്ങളും ഉപയോഗിച്ചാണ് പരസ്പരം ആക്രമണം നടത്തിയതെന് പോലീസ് പറഞ്ഞു ജനക്കൂട്ടത്തെ പിരിച്ചുവിടാൻ പോലീസിന് ആകാശത്തേയ്ക്ക് നിറയൊഴിക്കേ ി വന്നു

രോഗം കൂടുതൽ പ്രദേശങ്ങളിലേക്ക് പടരാതിരിക്കാനും നിയന്ത്രണ വിധേയമാക്കാനും ആവശ്യമായ എല്ലാ നടപടികളും കൈക്കൊ ുവരുന്നതായി മേഘാലയ ആരോഗൃമന്ത്രി എ

പാകിസ്ഥാനിൽ നിന്ന് അനുമോദനം അറിയിച്ചു കൊ ് ുളള സന്ദേശത്തോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വിദേശകാരൃമന്ത്രി എസ് ജയശങ്കറും അനുകൂലമായി പ്രതികരിക്കുക മാത്രമാണ് ചെയ്തത് ബിഷ്കെക്കിൽ നടന്ന ഷാങ്ഹായ് സഹകരണ സമിതി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാനും സൌഹൃദം പങ്കു വച്ചിരുന്നു

സാംഗ്മയുമായി കൂടിക്കാഴ്ച നടത്തവേയാണ് ഈ ആവശ്യം ഉന്നയിച്ചത്

സംസ്ഥാന റവന്യൂ ഗതാഗത വകൂപ്പ് മന്ത്രി ഗോവിന്ദ് സിംഗ് ഭോപ്പാലിൽ വാർത്താലേഖകരെ അറിയിച്ചതാണിക്കാരൃം